സംസ്ഥാന തല ഉദ്ഘാടനം കൊല്ലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും

ത കോൺഗ്രസും മുസ്ലിംലീഗും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും

ജെ പി സ്ഥാനാർത്ഥികൾ നാളെ

എഫ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചു

എസ് എൽ

വാർത്തകൾ വിശദമായി സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യും ആശ്രമത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് നടക്കുന്ന പദയാത്രയുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും

മഹാത്മാ ഗാന്ധി നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്രയുടെ ദിനം കൂടിയാണ് ഇന്ന്

കൂടുതൽ വിവരങ്ങളുമായി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ

സബർമതി ആശ്രമത്തിൽ നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

പദയാത്രയുടെ ആദ്യലാപ്പിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ നേതൃത്വം നൽകും

ന്യൂസ് ഡെസ്ക്ക് ആകാശവാണി സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് കൊല്ലത്ത് നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

സ്ഥാനാർഥിക്കൊപ്പം രണ്ട് പേരെ മാത്രമേ പത്രിക സമർപ്പണ സമയത്ത് അനുവദിക്കൂ

അടുത്തമാസം ആറിനാണ് വോട്ടെടുപ്പ് മെയ് രണ്ടിന് വോട്ടെണ്ണും രും അതിനിടെ കോൺഗ്രസും മുസ്ലിംലീഗും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് ആറിന് ഡൽഹിയിൽ ചേരുന്ന കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മറ്റിയുടെ യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്തും വട്ടിയൂർക്കാ വിലും കഴക്കൂട്ടത്തും ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന് പാർട്ടി ദേശീയ നേതൃത്വം നിർദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട്

പി സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും തൃശൂരിൽ ഇന്നലെ ചേർന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി എല്ലാ മണ്ഡലങ്ങളിലെയും സാധ്യാത ലിസ്റ്റ് അംഗീകരിച്ചു

നാളെ ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമതീരുമാനമാകും

പ്രമുഖ നേതാക്കൾ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് രുര വയനാട് ജില്ലയിൽ പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്

വിജയ് സാക്കറെയും പരിശോധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി പാലക്കാട് അഗളി മേഖല സന്ദർശിച്ച ശേഷമാണ് ഇവർ മാനന്തവാടിയിൽ എത്തിയത്

പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും നടത്തുമ്പോൾ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നു കളക്ടർ പറഞ്ഞു ദേഴ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്ര സേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി വിഴിഞ്ഞം കോട്ടപ്പുറം അടിമലത്തുറ പ്രദേശങ്ങളിലാണ് ഇന്നലെ വൈകുന്നേരം അൻപതോളം വരുന്ന കേന്ദ്ര സേനയും വിഴിഞ്ഞം പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത് രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് കടൽ വഴി മദ്യവും ലഹരി വസ്തുക്കളും സംസ്ഥാനത്തേക്ക് കടത്തുന്നത് തടയാൻ എക്സൈസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും കടലിൽ പരിശോധന ശക്തമാക്കി

നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്വീപ് ബോധവത്ക്കരണ ത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ കോളജ് വിദ്യാർഥികളായ കന്നി വോട്ടർമാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും

പശ്ചിമബംഗാളിലും അസമിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പിനും ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും

രുര എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ അടുത്തമാസം എട്ടിലേക്ക് മാറ്റി

എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ തീയതികൾ പുനനിശ്ചയിച്ച സാഹചര്യത്തിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ പ്രത്യേക ക്ലാസുകളും സംശയ നിവാരണത്തിന് ലൈവായി പ്രത്യേക ഫോൺ ഇൻ പരിപാടിയും സംപ്രേഷണം ചെയ്യുമെന്ന് കൈറ്റ് സി

മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ സമയക്രമം പ്രഖ്യാപിച്ചു

രുര മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവാ മണപ്പുറത്ത് പുലർച്ചെ നാലിന് ബലിതർപ്പണം തുടങ്ങി

കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം

രുര കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കൊയിലാണ്ടി നാദാപുരം താലൂക്ക് ആശുപത്രികളിലും ഒളവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും കോവാക്സിൻ ഉപയോഗിച്ച് കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ നടക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

തിങ്കളാഴ്ച മുതൽ ഭക്തരെ ശബരിമലയിലേക്ക് ദർശനത്തിനായി കടത്തിവിടും വെർച്ചൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിന് പാസ്സ് ലഭിച്ചവരെ മാത്രമാണ് ഇക്കുറിയും ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുക രുര സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രകാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെ ന്ന് മുന്നറിയിപ്പുണ്ട് വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് ഇടുക്കി പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

രംഭ ശബരിമല വിഷയത്തിൽ എൻ

എസിന്റെ നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു തരത്തിലും അനുവദിക്കാനാ വില്ലെന്ന് എൻ

എസ് ജനറൽ സെക്രട്ടറി ജി

വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എൻ